ജെ

ഒരു ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നേരന്ദ്രമോദി ഞായറാഴ്ച കൊച്ചിയിലെത്തും റെയിൽവേമന്ത്രി പീയുഷ് ഗോയലിന് ധനമന്ത്രാലയത്തിന്റെ അധിക ചുമതല ഇടക്കാല ബജറ്റ് ഗോയൽ അവതരിപ്പിക്കും

ജെ

നേതൃയോഗം ഇന്ന് തൃശൂരിൽ സംസ്ഥാന നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുട ക്കമാകും ആറുദിവസത്തെ കൈരളി അന്താരാഷ്ട്ര സാംസ്കാരികോത്സവം ഇന്ന് മുഖ്യമന്ത്രി കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യും കേരള കോൺഗ്രസ് എമ്മിന്റെ കേരള യാത്ര കാസർകോട്ട്നിന്ന് രാവിലെ ആരംഭിക്കും ദേശീയ ജൂനിയർ വനിതാ ഹോക്കി ചാമ്പൃൻഷിപ്പിൽ കേരളത്തിന് വിജയത്തുടക്കം പ്രിയങ്ക ഗാന്ധിയുടെ സജീവ രാഷ്ട്രീയ പ്രവേശനം പാർട്ടി അധ്യ ക്ഷൻ രാഹുൽഗാന്ധിയുടെ പ്രവർത്തന പരാജയം അംഗീകരിക്കുന്ന നട പടിയാണെന്ന് ബി ജെ

വിലയിരുത്തി കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയോടെ പ്രിയങ്ക ഗാന്ധിയെ എ ഐ

സി

കോൺഗ്രസിലെ നിയമനങ്ങളും തീരുമാനങ്ങളും കുടുംബകാരൃം മാത്രമാണെന്ന് കേന്ദ്രമന്ത്രിമാരായ പീയുഷ് ഗോയലും രവിശങ്കർ പ്രസാദും ഡൽഹിയിൽ അഭിപ്രായപ്പെട്ടു ജവഹർലാൽ നെഹ്റു തുട ങ്ങിവെച്ച കുടുംബവാഴ്ചയുടെ അവസാന കണ്ണിയാണ് പ്രിയങ്കാ ഗാന്ധി യെന്നും അവർ പറഞ്ഞു

ജെ

ക്കാർ പാർട്ടിയെ കുടുംബമായി കാണുമ്പോൾ കോൺഗ്രസ് കുടുംബത്തെ പാർട്ടിയായി കാണുകയാ ണെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു പ്രിയങ്കാ ഗാന്ധിയെ എ ഐ

സി ജനറൽ സെക്രട്ടറിയായി നിയ മിച്ച പാർട്ടി അധ്യക്ഷൻ രാഹുൽഗാന്ധിയുടെ തീരുമാനത്തെ കെ

സി സി വർക്കിങ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് സ്വാഗതം ചെയ്തു വരാൻപോകുന്ന ലോക്സഭാ തിരുഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മികച്ച വിജയംനേടാൻ പ്രിയങ്കയുടെ നിയമനം വഴിയൊരുക്കുമെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു

വേണുഗോപാലിന് സംഘ ടനാ ചുമതല നൽകിയ തീരുമാനത്തെയും കൊടിക്കുന്നിൽ സ്വാഗതം ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുദിവസത്തെ സന്ദർശനത്തിന് ഞായ റാഴ്ച കൊച്ചിയിലെത്തും കൊച്ചിയിലും തൃശ്ശൂരിലും ഏതാനും പരി പാടികളിൽ അദ്ദേഹം പങ്കെടുക്കും ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ കൊച്ചി നാവിക വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി എണ്ണശുദ്ധീകരണ ശാലയിലെ നാല് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും പെട്രോൾ കെമിക്കൽ റിഫൈനറി സമുച്ചയത്തിന് അദ്ദേഹം തറക്കല്ലിടുകയും ചെയ്യും തുടർന്ന് തൃശൂരെത്തുന്ന പ്രധാനമന്ത്രി തേക്കിൻകാട് മൈതാനിയിൽ പൊതുജന റാലിയെ അഭിസംബോധന ചെയ്യും

റെയിൽവേമന്ത്രി പീയുഷ് ഗോയലിന് ധനമന്ത്രാലയത്തിന്റെ അധി കചുമതല നൽകി കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി ശസ്ത്രക്രിയയെത്തു ടർന്ന് അമേരിക്കയിലെ ആശുപത്രിയിൽ കഴിയുന്ന സാഹചരൃത്തിലാണ് ഗോയലിന് പകരം ചുമതല ലഭിച്ചത് ഫെബ്രുവരി ഒന്നിന് ഗോയലായി രിക്കും ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുന്നത്

ജെ

നേതൃയോഗം ഇന്ന് തൃശൂരിൽ ചേരും ആദ്യം കോർ കമ്മിറ്റി യോഗവും പിന്നീട് സംസ്ഥാന ഭാരവാഹികളുടെയും മണ്ഡലം ഭാരവാ ഹികളുടെയും യോഗം നടക്കും

സംസ്ഥാന നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്ക മാകും

തിങ്കളാഴ്ച നയപ്രഖ്യാപന ത്തിലെ നന്ദിപ്രമേയ ചർച്ച ആരംഭിക്കും

തോമസ് ഐസക് അവതരി പ്പിക്കും ഫെബ്രുവരി നാല് മുതൽ ഏഴുവരെയാണ് ബജറ്റ് ചർച്ച ആറ് ദിവസത്തെ കൈരളി അന്താരാഷ്ട്ര സാംസ്കാരികോത്സവം ഇന്ന് കണ്ണൂരിൽ ആരംഭിക്കും

നായനാർ അക്കാദമിയിൽ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സാഹിത്യം സംഗീ തം സിനിമ നൃത്തം നാടകം ചിത്രകല തുടങ്ങിയ വിഷയങ്ങളിൽ സംവാ ദം പ്രഭാഷണം അവതരണങ്ങൾ എന്നിവ സാംസ്കാരികോത്സവത്തിൽ ഉണ്ടായിരിക്കും അടൂർ ്ഗോപാലകൃഷ്ണൻ എം മുകുന്ദൻ തുടങ്ങി ഇരുനൂറോളം പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും ഏഴിമല നാവിക അക്കാദമിയുടെ മാലിന്യ പ്രശ്നവുമായി ബന്ധ പ്പെട്ട് ഉടൻ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു സർവകക്ഷി നേതാക്കളുമായി കണ്ണൂ രിൽ നടത്തിയ ചർച്ചയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് കേരള കോൺഗ്രസ് എം വൈസ് ചെയർമാൻ ജോസ് കെ മാണി എം

നയിക്കുന്ന കേരള യാത്രയ്ക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാ കും

മാണി അധ്യക്ഷനാകുന്ന ചടങ്ങിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി യാത്ര ഉദ്ഘാടനം ചെയ്യും

ഇൻഡിഗോ എയർലൈൻസ് ഹൈദരാബാദ് ചെന്നൈ ബെംഗ ളുരു ഹുബ്ലി ഗോവ എന്നിവിടങ്ങളിലേക്കാണ് പ്രതിദിന സർവീസ് തുട ങ്ങുന്നത്

പൊതുതിരഞ്ഞെടുപ്പ് അവബോധ പരിപാടിയുടെ ഭാഗമായി തിര ഞ്ഞെടുപ്പ് കമ്മിഷൻ ഇന്ന് രാവിലെ സംഘടിപ്പിക്കുന്ന കൂട്ടയോട്ടം അൽപ്പ സമയത്തിനകം തുടങ്ങും കവടിയാർ വിവേകാനന്ദ പാർക്കിൽനിന്ന് ആരം ഭിക്കുന്ന കൂട്ടയോട്ടം പാളയം രക്തസാക്ഷിമണ്ഡപത്തിൽ സമാപിക്കും മുഖ്യതിരഞ്ഞെടുപ്പ് ഓഫീസർ ടി

മീണ കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്യും

കായിക മേഖലയെ ജോലിനേടാൻ കുറുക്കുവഴിയായി കാണാതെ ഒളിമ്പിക്സ് മെഡലിനായി പരിശ്രമിക്കാൻ പുതുതലമുറ തയ്യാറാകണ മെന്ന് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ആവശ്യപ്പെട്ടു കൊല്ലത്ത് ഒൻപ താമത് ദേശീയ ജൂനിയർ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദേശീയ കായിക ഇനം എന്ന നിലയിൽ ഹോക്കിയുടെ പ്രാധാന്യം നിലനിർത്താൻ ഗവൺമെന്റ് ശ്രമിച്ചുവരിക യാണെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന മന്ത്രി ഇ

ജയരാജൻ പറ ഞ്ഞു ദേശീയ ജൂനിയർ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയ രായ കേരളത്തിന് വിജയത്തുടക്കം

ഇന്നു വൈകിട്ട് അഞ്ചിന് കേരളം ഗുജറാ ത്തിനെ നേരിടും തിരുവനന്തപുരത്ത് ഇംഗ്ലണ്ട് ലയൺസിനെതിരായ ആദ്യ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്നലെ ഇന്ത്യ എ ടീമിന് മൂന്ന് വിക്കറ്റ് ജയം

അഞ്ച് പന്ത് ശേഷിക്കെ ഇന്ത്യ വിജയം നേടി അഞ്ച് മത്സര പരമ്പരയിലെ രണ്ടാമത്തെ കളി നാളെയാ ണ്

പകരം രോഹിത് ശർമയായിരിക്കും ക്യാപ്റ്റൻ കൊച്ചിയിൽ ഐ

ഫുട്ബോളിൽ നാളെ കേരള ബ്ലാസ്റ്റേ ഴ്സ് എ

ഏഷ്യാകപ്പ് ഫുട്ബോൾ മൂലം ഒരിടവേ ളയ്ക്ക് ശേഷമാണ് ഐ എസ് എൽ

രഞ്ജിട്രോഫി ക്രിക്കറ്റ് സെമിഫൈനലിൽ കൃഷ്ണഗിരി സ്റ്റേഡിയ ത്തിൽ ഇന്ന് കേരളം വിദർഭയെ നേരിടും

കാർട്ടറിൽ ശക്തരായ ഗുജറാത്തിനെ കീഴ്ടക്കിയാണ് കേരളം സെമിയി ലെത്തിയത് വൃദ്ധസദനങ്ങളുടെ കുറവുകൾ പരിഹരിച്ച് എല്ലാ സൌകര്യങ്ങളും ഏർപ്പെടുത്താൻ ഗവൺമെന്റിന്റെ സമ്പൂർണ പിന്തുണ ഉണ്ടാകുമെന്ന് മന്ത്രി ഇ

ജയരാജൻ കൊല്ലത്ത് പറഞ്ഞു ഇഞ്ചവിള വൃദ്ധസദനത്തിലെ നവീകരിച്ച മന്ദിരവും പുതിയ ബ്ലോക്കും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വൃദ്ധസദനത്തിലെ മോഡുലാർ കിച്ചൺ മന്ത്രി ജെ മേഴ്സിക്കുട്ടി യമ്മ ഉദ്ഘാടനം ചെയ്തു

ദക്ഷിണ കന്നഡ ജില്ലയിലെ പുത്തൂരിൽ കശുമാവ് ഉത്സവം ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു മന്തി

പോലീസ് സഭാഹാളിൽ രാവിലെ കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പൊതുസ മ്മേളനം ഉദ്ഘാടനം ചെയ്യും

ബാല ശാസ്ത്ര സാഹിതൃ പുരസ്കാരത്തിന് പ്രദീപ് കണ്ണങ്കോടിന്റെ അമ്മൂമ്മ ത്താടി എന്ന പുസ്തകം അർഹമായി

ബാബുജോസഫ് ശാസ്ത്ര പത്രപ്രവർത്തനത്തിന് ചെറുകര സണ്ണി ലൂക്കോസ് ശാസ്ത്ര ഗ്രന്ഥത്തിന്റെ മലയാള വിവർത്ത നത്തിന് പി

സ്ത്രീകളുടെയും കുട്ടികളുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമ ത്തിന് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ജില്ലാ കളക്ടർമാർക്ക് ഏർപ്പെ ടുത്തിയ പുരസ്കാരം മലപ്പുറം ജില്ലാ കളക്ടർ അമിത് മീണ ഇന്ന് തിരു വനന്തപുരത്ത് ഏറ്റുവാങ്ങും

മഞ്ചേരി ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ താൽക്കാ ലിക ഫാം തൊഴിലാളികളുടെ പണിമുടക്ക് ഒത്തുതീർന്നു തൊഴിൽദിന ങ്ങൾ വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു പണിമുടക്ക് മുൻപ് നൽകിയിരുന്നത്ര തൊഴിൽദിനങ്ങൾ നൽകാമെന്ന് കേരള കാർഷിക സർവകലാശാല ഭരണസമിതി ഉറപ്പ് നൽകിയതിനെത്തുടർന്നാണ് ഒൻപ തുദിവസം പിന്നിട്ട് പണിമുടക്ക് അവസാനിപ്പിച്ചത് മകരവിളക്കിന് അയ്യപ്പവിഗ്രഹത്തിൽ ചാർത്തിയ തിരുവാഭരണങ്ങൾ പന്തളം കൊട്ടാരത്തിൽ ഘോഷയാത്രയായി മടക്കിയെത്തിച്ചു കൊട്ടാര നിർവാഹകസംഘവും സംഘടനകളും ഭക്തരും യാത്രാസംഘത്തെ വര വേറ്റു

പാലാ രാമപുരം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കന്ററി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ സമാപന ചടങ്ങുകൾക്ക് തുടക്കമായി

ഇക്കൊല്ലത്തെ തോപ്പിൽരവി പുരസ്കാരത്തിന് ബി